നാഷണൽ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ പൊതുയോഗൃതാ പരീക്ഷ സംസ്ഥാനങ്ങൾക്കും ബാധകമാക്കാമെന്ന് കേന്ദ്ര മന്ത്രി ജിതേന്ദ്ര സിംഗ്

രാജ്യത്ത് ഈ വർഷം അവസാനത്തോടെ കോവിഡ് പ്രതിരോധ വാക്സിൻ ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാരെന്ന് മന്ത്രി ഹർഷ വർധൻ

കേരളത്തിലെ കൺസ്യൂമർ ഫെഡ് ഓണചന്തകളിൽ കോവിഡ് മാനദണ്ഡം കൃത്യമായി പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

പിന്നീട് സ്വകാര്യ മേഖലയുമായും ഇത് പങ്കുവയ്ക്കാം

കേന്ദ്രം പട്ടികപ്പെടു ത്താത്ത വിമാന സർവ്വീസുകൾക്കാണ് ഈ മാർഗ്ഗ നിർദ്ദേശങ്ങൾ കൂടുതൽ വിവരങ്ങളുമായി സുരേഷ്

വന്ദേ ഭാരത് വിമാനങ്ങളിൽ ഇന്ത്യയിലേക്ക് തിരിച്ചുവരാൻ ആഗ്രഹിക്കുന്ന പൌരൻമാർ അവർ താമസിക്കുന്ന രാജ്യങ്ങളിലെ ഇന്ത്യൻ മിഷനുകളിൽ രജിസ്റ്റർ ചെയ്യണം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിക്കുന്ന ആവശ്യമായ വിശദാംശങ്ങളും നൽകണം എയർ ട്രാൻസ്പോർട്ട് ബബിൾസ് ക്രമീകരണത്തിൽ ഈ രജിസ്ട്രേഷൻ ആവശ്യമില്ല കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അനുവദിക്കുന്ന ഷെഡ്യൂൾ ചെയ്യാത്ത വിമാനങ്ങളും പ്രതിരോധഷിപ്പിംഗ് മന്ത്രാലയം അനുവദിക്കുന്ന കപ്പലുകളും വഴി ജനങ്ങൾക്ക് ഇന്ത്യയിലേക്ക് മടങ്ങി വരാം

ഈ വിവരം മുൻകൂട്ടി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണപ്രദേശങ്ങൾക്കും മന്ത്രാലയം കൈമാറും

ഇന്ത്യയിൽ ഈ വർഷം അവസാനത്തോടെ കോവിഡ് പ്രതിരോധ വാക്സിൻ വിതരണം ചെയ്യാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ വാക്സിൻ മനുഷ്യരിൽ പരീക്ഷിക്കുന്നതിനുള്ള മൂന്നാംഘട്ടത്തി ലേക്ക് കടന്നതായി ഇന്നലെ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ഹർഷ് വർധൻ വൃക്തമാക്കിയിരുന്നു

ഊർജിത പരിശോധനയും കാര്യക്ഷമിമായ ചികിത്സയുമാണ് രാജ്യത്ത് രോഗമുക്തി നിരക്ക് വർധിപ്പിക്കുന്നത്

ഏഴ് ലക്ഷത്തോളം പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് മൂന്നര കോടിയിലധികം കോവിഡ് സാമ്പിളുകൾ രാജ്യത്ത് ഇതുവരെ പരിശോധിച്ചതായും ഇന്നലെ മാത്രം എട്ട് ലക്ഷത്തിലധികം സാമ്പിൾ പരിശോധനകൾ നടന്നുവെന്നും ഐ സി എം ആർ അറിയിച്ചു

എൺപത്രര ലക്ഷം പേർ ഇവിടെ ഇതുവരെ രോഗമുക്തി നേടിയിട്ടുണ്ട്

നേരത്തെ ഈ മാർക്കറ്റുകൾ വൈകുന്നേരവും തുറക്കാൻ അനുവദിച്ചിരുന്നു

കേരളത്തിൽ ഓണം മുഹറം സഹകരണ ഓണ വിപണിയുടെ ഉദ്ഘാടനം രാവിലെ ഓൺലൈൻ ആയി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു

കോവിഡിന്റെ സാഹചര്യത്തിൽ സാധാരണ പോലെ ഓണം വിപണി കൺസ്യൂമർ ഫെഡിന് സംഘടിപ്പിക്കാൻ കഴിയുന്നില്ല

ഓണചന്തകൾ ആഘോഷമല്ല വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുന്ന കേന്ദ്രമായി മാത്രം കാണണം

ഓണ ചന്തയിൽ പ്രവേശിക്കുന്നവർ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

സമ്മേളനത്തിന് മുന്നോടിയായി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള ക്രമീകരണങ്ങൾ സഭയിൽ ഒരുക്കി സീറ്റുകളുടെ ക്രമീകരണം പുതിയ ഇരിപ്പിടങ്ങൾ സഭയിൽ പ്രവേശിക്കുന്നവർക്കുള്ള മുൻകരുതലുകൾ അംഗങ്ങൾക്കും ജീവനിക്കാർക്കും വാച്ച് ആൻഡ് വാർഡിനുമുള്ള ആന്റിജൻ ക്രമീകരണങ്ങളാണ് പ്രധാനമായും ഏർപ്പെടുത്തിയത്

കർഷകരുടെ പ്രയത്നമാണ് രാജ്യത്തെ ഭക്ഷ്യാൽപ്പാദനത്തിൽ സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

മദ്രാസ് പ്രസിഡൻസി മുഖ്യമന്ത്രിയായും ആന്ധ്രാ മുഖ്യമന്ത്രിയായും മികച്ച സേവനമാണ് അദ്ദേഹം കാഴ്ചവച്ചത് സൈമൺ കമീഷൻ വിരുദ്ധ പ്രക്ഷോഭത്തിലൂടെ ആന്ധ്ര കേസരി എന്ന വിളിപ്പേരിന് അദ്ദേഹം അർഹനായെന്നും ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു

ചൈനയുമായുള്ള അതിർത്തി തർക്കം സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തി

നയതന്ത്രതലത്തിലും സൈനിക തലിത്തില്ും ഇന്ത്യയും ചൈനയും നിരവധി ചർച്ചകൾ കഴിഞ്ഞു മാസങ്ങളിൽ നടത്തിയിട്ടുണ്ട് നിലവിലുള്ള ഉടമ്പടികൾക്കും ചട്ടങ്ങൾക്കും അനുസ്യതമായി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും ധാരണയായതായി വിദേശകാര്യ മന്ത്രാലയും പ്യക്തമാക്കിയിരുന്നു

കാവേരി ഡൽറ്റ മേഖലയിലെ പ്രധാനപാതയാണിത്

ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ

മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഉപവാസ സമരം രാവിലെ ഓൺലൈൻ ആയി ഉദ്ഘാടനം ചെയ്തു വൈകുന്നേരം വരെയാണ് ഉപവാസ സമരം വൈകിട്ട് നാലുമണിക്ക് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ വെർച്ചൽ റാലി ഒ രാജഗോപാൽ എം

എ ഉദ്ഘാടനം ചെയ്യും

വീടുകളിലും പാർട്ടി ഓഫീസുകളിലും കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ച് വൈകുന്നേരമാണ് സത്യഗ്രഹം

കുട്ടികളും സാമൂഹിക അകലം പാലിക്കണം അഞ്ച് വയ്സ്സിന് താഴെയുള്ള കുട്ടികളെ രോഗബാധിത മേഖലകളിൽ കൊണ്ടു പോകരുതെന്നും നിർദേശമുണ്ട്

ചൈനയുമായുള്ള ഇത്തരം ബന്ധം അമേരിക്കയ്ക്ക് ഇപ്പോൾ ആവശ്യമില്ലെന്നും യു എസിനോട് നീതി പുലർത്തുന്നില്ലെങ്കിൽ ചൈനയുമായുള്ള വ്യാപാര വാണിജൃ ബന്ധം വിഛേദിക്കുക തന്നെ ചെയ്യുമെന്നും ട്രംപ് ഒരു ടി വി അഭിമുഖത്തിൽ പറഞ്ഞു